പാർലമെന്റ് വർഷകാല സമ്മേ ളനത്തിനു മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന എം പിമാരുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം സംസ്ഥാനത്തിന്റെ വികസനത്തിന് തടസ്സമായ സമീപനങ്ങൾ എം പിമാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭക്ഷ്യസുരക്ഷാനിയമം നടപ്പാക്കിയപ്പോൾ കേരളത്തിന് നഷ്ട മാകുന്ന ഭക്ഷ്യവിഹിതം പുനസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാന മന്ത്രിയെ നേരിൽ കാണുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവ കക്ഷി സംഘത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെയും പാലക്കാട് കോച്ച് ഫാക്ടറി വിഷയത്തിൽ റെയിൽവെയും കേന്ദ്ര ഗവൺമെന്റും കാട്ടുന്ന നിസ്സഹകരണം അവസാനിപ്പിക്കണമെന്നാവശൃപ്പെട്ടും യോഗം പ്രമേയം പാസ്സാക്കി

ക്കുമെന്നതിനാലാണ് ഉഡാൻ പദ്ധതിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളം പിന്മാറിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്തുന്നതിന് അനുവാദം ലഭിക്കണ മെന്നും ഹജ്ജ് തീർത്ഥാടകരുടെ എംബാർക്കേഷൻ സെന്ററായി പ്രഖ്യാ പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസമേഖലയിൽ യു

സി വേണ്ടെന്ന കേന്ദ്ര സമീപനം വലിയ ആശങ്ക ഉളവാക്കുന്നുവെന്നും ഈ രംഗത്ത് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രാന്റ് ഇല്ലാതാകുന്ന് സ്ഥിതി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധിയുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിപ്പ വൈറസ് ബാധ ഉണ്ടായ സാഹചര്യം പരിഗ ണിച്ച് ആലപ്പുഴ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സെന്ററിന്റെ വികസനത്തിന് കേന്ദ്രസഹായം ആവശ്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബയോസേഫ്റ്റി ലാബ് സ്ഥാപിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

അല്ലാത്തപക്ഷം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ രക്തസാക്ഷിത്വത്തിന് അർത്ഥമുണ്ടാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽകൂടി ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ മാത്രമേ ബി ജെ പിയുടെ ദൌതൃം പൂർണ്ണമാകൂ എന്നും അമിത് ഷാ വൃക്തമാക്കി തിരുവനന്തപുരത്ത് തെക്കൻ കേരളത്തിലെ ആറ് ലോക്സഭാമണ്ഡലങ്ങളിലെ പാർട്ടി പ്രവർ ത്തകരുടെ കൺവൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അമിത് ഷാ

സംസ്ഥാനത്ത് രാഷ്ട്രീയ അക്രമ ങ്ങൾക്ക് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുന്നതിൽ ബി ജെ പി വിശ്വസിക്കുന്നില്ല വികസനത്തിലാണ് ബി ജെ പിക്ക് താൽപര്യമെന്നും പാർട്ടി അധ്യക്ഷൻ വൃക്തമാക്കി പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിലും അമിത് ഷാ പങ്കെടുത്തു ലക്ഷദ്വീപിലെ ബി ജെ പി നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഇന്നു രാവിലെ അമിത്ഷാ ഡൽഹിക്ക് മടങ്ങും

തീർത്ഥാടകരെ രക്ഷിക്കു ന്നതിന് എല്ലാ സഹായവും നൽകാൻ വിദേശകാര്യമന്ത്രാലയം ഉൾപ്പെടെ ഓഫീസുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി മലപ്പുറം വണ്ടൂർ കിടങ്ങഴി മനയ്ക്കൽ ലീലാ മഹേന്ദ്ര നാരായണൻ ഉൾപ്പെടെ തീർത്ഥാടക സംഘത്തിൽപ്പെട്ട രണ്ട് പേരാണ് കഴിഞ്ഞ ദിവസം നേപ്പാ ളിൽ മരിച്ചത്

പോസ്റ്റുമോർട്ടം നടപടികൾക്കുശേഷം ലീലാ മഹേന്ദ്രന്റെ മൃത ദേഹം ഇന്ന് ഡൽഹിയിൽ എത്തിക്കും അതിനിടെ ജമ്മു കശ്മീരിലെ ഗണ്ഡർബാൽ ജില്ലയിൽ അമർനാഥ് യാത്രികർ സഞ്ചരിക്കുന്ന റൂട്ടിൽ ബാൽത്താലിൽ മണ്ണിടിച്ചി ലിൽ അഞ്ചുപേർ മരിച്ചു

നാലു പുരുഷ ന്മാരും ഒരു സ്ത്രീയുമാണ് മരിച്ചതെന്ന് പൊലീസ് അറിയിച്ചു സംസ്ഥാനത്തെ മെഡിക്കൽ ഡെന്റൽ അനുബന്ധ കോഴ്സു കളിൽ പ്രവേശനത്തിന് ആദൃ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ വൈകിട്ടോടെ ദ്ദ യാണ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക അംഗീകാരപ്രശ്നം പരിഹരി ക്കാത്തതിനാൽ പുതിയ കോളേജുകൾ ഉൾപ്പെടുത്താതെയാണ് അലോ ട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് ന്യൂനപക്ഷ പദവിയുള്ള സ്ഥകാര്യ സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ കമ്മ്യൂണിറ്റി കാട്ട സീറ്റുകളിലേക്ക് അലോട്ട്മെന്റ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയതായി പ്രവേശനപരീക്ഷാ കമ്മീഷണർ തിരുവനന്തപുരത്ത് അറിയിച്ചു

നിപ പ്രതിരോധത്തിൽ കേരളത്തിന്റെ പ്രവർത്തനം ലോക ത്തിന് തന്നെ മാതൃകയാണെന്ന് കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനം പറഞ്ഞു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ആരോഗ്യപ്രവർത്ത കർ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജനശക്തി സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ക്യോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു അൽഫോൻസ് കണ്ണന്താനം മറ്റൊരു ചടങ്ങിൽ മർകസ് നോളജ് സിറ്റിക്ക് കീഴിൽ നിർമ്മിക്കുന്ന സ്റ്റുഡന്റ്സ് വില്ലേജിന്റെ ശിലാ സ്ഥാപനവും കണ്ണന്താനം നിർവ്വഹിച്ചു ലാവ്ലിൻ കേസിൽ മുഖൃമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്നുപേരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും സി ബി ഐയാണ് ഹർജി നൽകി യത്

ഷൂട്ടൌട്ടിൽ മൂന്നിനെതിരെ നാലു ഗോളുകൾക്ക് കൊളംബി യയെ തകർത്താണ് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ എത്തിയത്

സ്വിറ്റ്സർലാന്റിനെ എതിരില്ലാത്ത ഒരുഗോളിന് തകർത്താ ണ് സ്വീഡൻ കാർട്ടർ സ്പ്നം യാഥാർത്ഥൃമാക്കിയത് ഇന്നും നാളെയും കളിയില്ല

ഇന്ത്യക്ക് ജയം

നവീകരിക്കുന്നതിന്റെ മുന്നോടിയായ പരിശോധന ഇന്ന് നടക്കും ജലോ ത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് യുക്തമായ സ്റ്റാർട്ടിംങ് സംവിധാനം തയ്യാറാക്കാൻ സന്നദ്ധത അറിയിച്ചവരിൽ നിന്ന് മാതൃകകൾ പരിശോധി ക്കാനാണ് തീരുമാനം ഇറിഗേഷൻ വകുപ്പാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്

മാതാവും ഉൾപ്പെടെ മൂന്നുപേരെ കൊല്ലത്ത് പൊലീസ് കസ്റ്റഡിയിൽ എടു ത്തു മുളങ്കാടകത്തെ ഇവരുടെ ആഡംബര വീട്ടിൽ നിന്നും കള്ളനോട്ട് അടിക്കുന്നതിനുള്ള സാമഗ്രികളും പൊലീസ് പിടിച്ചെടുത്തു ഇടുക്കി യിൽ അണക്കരയിൽ കഴിഞ്ഞ ദിവസം പൊലീസ് നടത്തിയ പരിശോധ നയിൽ രണ്ടരലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ പിടികൂടുകയും മൂന്നു പേരെ അറസ്റ്റ് ചെയ്യുകയും സീരിയൽ നടി ഉൾപ്പെടെ രണ്ടുപേരെ കസ്റ്റ ഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ ട നിന്നാണ് കൊല്ലത്താണ് കള്ളനോട്ട് അടിച്ചതെന്ന വിവരം പൊലീസിന് ലഭിച്ചത്

എല്ലാ നിയമവശങ്ങളും പൂർത്തിയാക്കിയ ശേഷമേ ബിഷപ്പിനെ ചോദ്യം ചെയ്യുവെന്ന് കോട്ടയം ജില്ലാ പൊലീസ് മേധാവി ഹരിശങ്കർ അറിയിച്ചു

ശബരിമല തീർത്ഥാടനപാതയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീ കരണ മാർഗ്ഗങ്ങൾ വിലയിരുത്താൻ പത്തനംതിട്ട ജില്ലാ പൊലീസ് മേധാവി ടി നാരായണന്റെ നേതൃത്വത്തിൽ പൊലീസ് സംഘം പരിശോ ധന ആരംഭിച്ചു ഇന്ന് പമ്പ പാണ്ടിത്താവളം സന്നിധാനം എന്നിവിട ങ്ങളിൽ സംഘം പരിശോധന നടത്തും

അടിമാലി ഗ്രാമപഞ്ചായത്ത് പെട്ടിമുടി ഞാവൽമറ്റത്ത് തങ്കച്ചനാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്

കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറയ്ക്ക് സമീപം ബൈക്കും കെ